ഡൽഹിയിലെ ക്രമസമാധാന നില കേന്ദ്ര ആഭൃന്തരമന്ത്രി അമിത് ഷാ വിലയിരുത്തി സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ജാഗരൂകരാകാൻ ആഭ്യന്തരമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

സ്വന്തം ജനതയുടെ ക്ഷ്മമത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്പാകിസ്ഥാനോട് ഇന്ത്യ

ഇപ്പോഴും നിലനിൽക്കുന്നതായി ലോകാരോഗ്യ സംഘടന

ജാതി മത വിത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷ ഒരുക്കാൻ ഡൽഹി പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഡൽഹിയിലെ അക്രമസംഭവങ്ങൾ നിയന്ത്രിക്കുന്നതിന് നിയന്ത്രിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ വിലയിരുത്താൻ ഇന്നലെ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ല ഡൽക്റ്റി പോലീസ് കമ്മീഷണർ അമൂല്യ പട്നായിക് തുടങ്ങിയ ഉന്നത ഉദ്യോഗ്രസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു

ഇതിൽരണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു കലാപം പ്പിട്ടിപ്പുറപ്പെട്ട വടക്കു കിഴക്കൻ ഡൽഹിയിൽ ഏഴായിരം കേന്ദ്ര സേനാംഗ്ദങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്

വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ജനങ്ങൾ പിന്മാറണമെന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്നും ഡൽഹി പോലീസ് ജനങ്ങളോട് ് അഭ്യർത്ഥിച്ചു

സി പി മാരായ ജോയ് ടിർകി രാജേഷ് ഡിയോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്

പരാജയപ്പെട്ട രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജനീവയിൽ നടന്ന യു

കൌൺസിലിൽ പൌരത്വ ഭേദഗതി നിയമവും കശ്മീർ വിഷയവും ഉയർത്തിയ പാകിസ്ഥാനെതിരായ ശക്തമായ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയത് ജമ്മു കശ്മീരിൽ സ്ഥിതിഗതികൾ വേഗത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും ഇന്ത്യ കൌൺസിലിനെ അറിയിച്ചു

മന്ത്രാലയ സെക്രട്ടറി ഡോ

ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികൾ വഴി പതിനയ്യായിരം പേർക്ക് ജോലി ലഭിക്കും ഭക്ഷ്യ സംസ്ക്കരണത്തിന് ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത് കർഷകർക്ക് സ്ഥിരവരുമാനം ഉറപ്പാക്കുമെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ന്യൂഡൽഹിയിൽ ഭക്ഷ്യ സംസ്ക്കരണ വ്യവസായ മന്ത്രി ഹർസിമ്രത് കൌർ ബാദലിന്റെ അദ്ധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്

ഇന്നലെ വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ മ്യാൻമർ പ്രസിഡന്റ് യു വിൻ മിന്റിനെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സഹകരണ സന്നദ്ധമായ അയൽപക്കം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടിന്റെ ഹൃദയഭാഗത്താണ് ഇന്ത്യമ്യാൻമർ പങ്കാളിത്തമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഊർജ്ജം ഗതാഗതം ഡിജിറ്റൽ കണക്റ്റിവിറ്റി ടൂറിസം പൈതൃക സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ മ്യാൻമറുമായുള്ള പങ്കാളിത്തം വിപൂലീകരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു

റാഞ്ചിയിലെ ഝാർഖണ്ഡ് കേന്ദ്ര സർവകലാശാലയിലെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും നാളെ ബിഷുൺപൂരിലെ വികാസ് ഭാരതി ശ്രീ

ഛത്തീസ്ഗഢ് സന്ദർശനത്തിനിടെ ബിലാസ്പൂർ ഗുരു ഖസീദാസ് സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും

ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ഓരോ സംസ്ഥാനത്തുനിന്നും മുഖ്യമന്ത്രിക്കൊപ്പം രണ്ട് കാബിനറ്റ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും അന്തർ സംസ്ഥാന ജല പ്രശ്നങ്ങൾ വൈദ്യുതി പ്രസരണ ലൈനുകൾ റോയൽറ്റി കൽക്കരി ഖനികളുടെ പ്രവർത്തനം റെയിൽ പദ്ധതികളുടെ ഭൂമി വനം അനുമതി ഗുരുതര കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം എന്നിവ ഉൾപ്പെടെ നാല് ഡസനോളം വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അന്വേഷണം പൂർത്തിയാക്കി ബാക്കി കേസുകളും പിൻവലിക്കണമെന്ന് ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു

പി പ്രഗ്യാ സിങ് ധാക്കൂർ മുംബൈ എൻ ഐ എ കോടതിയിൽ ഹാജരായി

പ്രത്യേക കോടതി ജഡ്ജി വി

ആഗോള സമൂഹം വൈറസ് ബാധാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കുന്നതിനിടെയാണ് ണ

ജപ്പാനിലും ഇറാഖിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും അവധിയാണ് ചൈനയ്ക്കു പുറമെ ദക്ഷിണ കൊറിയ ഇറ്റലി എന്നീ രാജ്യങ്ങളിലും വൈറസ് ബാധ വ്യാപകമാണ്

ഇറ്റലിയിലും ഇറാനിലും പുതുതായി കൊറോണ ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാനങ്ങളിലൂടെ വരുന്ന യാത്രക്കാരെ കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു

അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു

ചാത്തന്നൂർ എ സി

സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും സന്ദേശം കൈമാറി